ഫലസൂചനകൾ എൻ ഡി എ സഖ്യത്തിന് അനുകൂലം

സംസ്ഥാനത്ത് തദ്ദേശ ത്രെഞ്ഞെടുപ്പിനുള്ള ന് അന്തിമ വോട്ടർ പട്ടിക് ്നൂട്ളെ പുറത്തിറക്കും

നൽകി മുന്നണികൾ എൽ

എഫ് സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും

എണ്ണത്തിൽ ഗണ്യമായ കുറവ്

നിലവിലെ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ജെ

വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലീഡ് ഉയർത്താൻ മഹാസഖ്യത്തിനായെങ്കിലും രണ്ടാം ഘട്ടത്തിൽ എൻ ഡി എ സഖ്യം ലീഡ് നിലയിൽ മുന്നേറ്റം തുടരുകയാണ്

നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ

എ യും തേജസി യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യവും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം

പൊലീസും കേന്ദ്രസേന്നയും സുരക്ഷാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ത്രിത്രിൽ സുരക്ഷയിലാണ് വോട്ടെണ്ണൽ

ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ ആരംഭിച്ചു

എന്നാൽ ഏതാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടതിനാലാണ് ഒരു ദിവസം കൂടി സമയം അനുവദിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്നുതന്നെ പട്ടിക പ്രസിദ്ധീകരിക്കാവുന്നതാണ്

എഫ് സംസ്ഥാന നേതൃയോഗം ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകും കേരള കോൺഗ്രസ് ജോസ്

മാണി വിഭാഗം എൽ

മാണിയും സ്റ്റീഫൻ ജോർജ്ജും യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന

സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ക്ക്സുരേന്ദ്രൻ ന്യൂഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച് നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാതാണ് ഡൽഹിയിൽ എത്തിയതെന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു

കേരളാ കോൺഗ്രസ്സ് ജോസ് കെ മാണി വിഭാഗം യു

എഫ് വിട്ട് എൽ

എഫിൽ ചേർന്നതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കേരളാ കോൺഗ്രസ്സിന്റെ ശക്തികേന്ദ്രമായ കോട്ടയത്തെ ശ്രദ്ധേയമാക്കുന്നു തദ്ദേശം നറുക്കെടുപ്പ് പുനർവിജ്ഞാപനങ്ങൾ പാലാ കോതമംഗലം മലപ്പുറം മുനിസിപ്പാലിറ്റികൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പത്തനം തിട്ട ജില്ലയിലെ അയിരൂർ മൈലപ്ര ഗ്രാമപഞ്ചായത്തുകൾ എറണാകുളം ജില്ലയിലെ കാലടി ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തുകൾ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ നിയോജക മണ്ഡലങ്ങളും വാർഡുകളും നിർണ്ണയിക്കാൻ പുനർവിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചു നാളെ നറുക്കെടുപ്പ് നടത്താൻ നിർദ്ദേശിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

മുനിസിപ്പാലിറ്റികളിൽ അതത് നഗര കാര്യ ജോയിന്റ് ഡയറക്ടർമാരെയും ഗ്രാമബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്

എ വരവിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ച കേസിൽ കെ

ഷാജി എം

എ ഇന്ന് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ സബ്സോൺ ഓഫീസിൽ ഹാജരാകും ഇന്നലെ ഷാജിയുടെ ഭാര്യയുടെ മൊഴി ഇ

എ യെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു

എ യുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി തെളിവുകൾ ശേഖരിക്കാൻ സമയം വേണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് കോടതി അദ്ദേഹത്തെ രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം കസ്റ്റഡി കാലാവധി ചുരുക്കണമെന്ന് കമറുദീന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു

ഇത് കോവിഡ് പ്രതിരോധത്തിലെ സുപ്രധാന നേട്ടമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകൃിയും ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കുകയും രോഗ്പ്പ്യാപനം തടയുകയും ചെയ്താണ് ഈ ലക്ഷ്യം നേടിയത്തെന്ന് മന്ത്രാലയം വൃക്തമാക്കി

സാമ്പിൾ പരിശോധനകളിലെ കുറവാണ് രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ

കോവിഡ് രോഗം ലാഘവത്തോടെ കാണരുതെന്നും തികഞ്ഞ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ആദ്യഘട്ടത്തിൽ സയൻസ് പാർക്ക് ശാസ്ത്ര ഗാലറി എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും പ്രവേശനം

വെട്ടുകാട് തീർത്ഥാടനം പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദെ ദേവൂസ് ദേവാലയത്തിലെ ഈ വർഷത്തെ തിരുനാൾ നടത്തിപ്പിന് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോ

തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയുടെ അകത്തും പരിസരങ്ങളിലും പ്രവേശിക്കുന്നതിനു കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ അറിയിച്ചു

ആദൃ പകുതിയിൽ ഒരുപക്ഷേ മുംബൈയെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ഡൽഹി

ബാലന്റെ വസതിയിലേക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നടത്തുന്ന പദയാത്ര ഇന്ന് അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിക്കും മറ്റന്നാൾ മന്ത്രിയുടെ പാലക്കാട്ടെ വീട്ടുപടിക്കൽ എത്തി കാര്യങ്ങൾ അറിയിക്കുമെന്ന് വാളയാർ സമര സമിതി നേതാക്കൾ അറിയിച്ചു